ഗുവാഹത്തിയിൽ നടക്കുന്ന രണ്ടാമത് ഇന്ത്യൻ ഓപ്പൺ അന്താരാഷ്ട്ര ബോക്സിംഗ് ടൂർണമെന്റിൽ മേരികോം ഉൾപ്പെടെ ഇന്ത്യയുടെ ഒൻപത് ബോക്സർമാർ ഇതുവരെ നടന്ന മത്സരങ്ങളിൽ വിജയിച്ചു

വിശദാംശങ്ങളുമായി ദീപു

തെരഞ്ഞടുപ്പിന് ഉപയോഗിച്ച വോട്ടിംഗ് മെഷീനുകൾക്ക് പകരം മറ്റു മെഷീനുകൾ സ്ഥാപിക്കുന്നതായി ആരോപിച്ച് ചില പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ഇവിഎമ്മുകൾ ശക്തമായ സുരക്ഷയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് കമ്മീഷൻ വിശദീകരണം നല്കി സ്ഥാനാർത്ഥികളുടെയും നിരീക്ഷകരുടെയും സാന്നിദ്ധ്യത്തിൽ ശക്തമായ ബന്ദവസ്സിൽ ഇവിഎമ്മുകളും വിവിപാറ്റുകളും ഇരട്ട പൂട്ടിട്ട് സൂക്ഷിച്ചിരിക്കുകയാണെന്ന് കമ്മീഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം വീഡിയോയിൽ പകർത്തി സൂക്ഷിച്ചിട്ടൂണ്ടെന്നൂം പ്രസ്താവനയിൽ പറയൂന്നൂ

ഇതുമായി ബന്ധപ്പെട്ട് ഏത് പരാതിയും വോട്ടെണ്ണൽ അവസാനിക്കുന്നതു വരെ ഈ നമ്പരിൽ വിളിച്ചുറിയിക്കാവുന്നതാണ് വോട്ടെണ്ണൽ ദിവസം നിരീക്ഷകരുടെയും സ്ഥാനാർത്ഥികളുടെയും സാന്നിദ്ധ്യത്തിൽ സ്ട്രോംങ് റൂമുകൾ തുറക്കുമ്പോഴും അത് വീഡിയോയിൽ പകർത്തും ന്യൂസ് ഡസ്ക് ആകാശവാണി

വിവിപാറ്റ് സ്ലിപ്പുകൾ ഒത്തുനോക്കുന്ന സമയത്ത് വൈരുദ്ധ്യങ്ങൾ കണ്ടാൽ ആ നിയമസഭാമണ്ഡലത്തിലെ നൂറു ശതമാനം പേപ്പർ സ്തിപ്പുകളും ഒത്തുനോക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു കോൺഗ്രസ് ടി ഡി പി ഇടതുപക്ഷ പാർട്ടികൾ ബി

പി എൻ സി പി ടി എം സി ആർ

ഇവിഎമ്മുകൾ അനധികൃതമായി പലയിടങ്ങളിലേക്കും മാറ്റുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടെന്ന് ന്യൂഡൽഹിയിൽ കോൺഗ്രസ് വക്താവ് രാജീവ് ശുക്സ മാധ്യമങ്ങളോട് പറഞ്ഞു ഇവിഎമ്മുകളുമായി ബന്ധപ്പെട്ട യാതൊരു തിരിമറിയും ഉണ്ടാകാതിരിക്കുന്നു എന്നുറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൃശ്ശൂർ കൈകൊള്ളണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

മന്ത്രിമാർ രാജൃത്തിന് നല്കിയ സേവനത്തിന് നന്ദി പ്രകടിപ്പിക്കാനായാണ് ന്യൂഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് മന്ത്രിമാരുടെ ഒത്തു ചേരൽ സംഘടിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ്സിംഗ് നിർമ്മലാ സീതാരാമൻ രാജ്യവർദ്ധൻസിംഗ് രാത്തോഡ് സ്മൃതി ഇറാനി രാംവിലാസ് പസ്വാൻ എന്നിവരും പങ്കെടുക്കുന്നുണ്ട് ശേഷം എൻ

എ നേതാക്കൾ അത്താഴത്തിനായി ഒത്തുചേരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച അജണ്ടകൾ ചർച്ച ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാർ മുഖൃമന്ത്രി നിതീഷ് കുമാറുമായും ശിവസേന അദ്ധ്യക്ഷൻ ഉദ്ദവ് താക്കറെ ലോക്ജനശക്തി പാർട്ടി നേതാവ് രാംവിലാസ് പസ്വാനുമായും കൂടിക്കാഴ്ച നടത്തും ബിജെപി നയിക്കുന്ന എൻ

എ ഗവണ്മെന്റ് വീണ്ടും അധികാരത്തിലെത്തുമെന്ന എക്സിറ്റ് പോൾ ഫലപ്രവചനത്തെ തുടർന്നാണ് രണ്ടു ചർച്ചകളും സംഘടിപ്പിച്ചിരിക്കുന്നത്

തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംരക്ഷണത്തിലുള്ള വോട്ടിംഗ് മെഷീനുകളുടെ ഉത്തരവാദിത്തം കമ്മീഷനു തന്നെയാണെന്നും അടിത്തറയെ വെല്ലുവിളിക്കുന്ന സംശയങ്ങൾക്ക് ഇടം നല്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ജനവിധി പവിത്രമായ ഒന്നാണെന്നും അതിൽ സംശയാതീതമായിരിക്കണമെന്നും ശ്രീ

ഭീമമായ കടബാധ്യത ഉണ്ടായതിനാൽ കഴിഞ്ഞ മാസത്തോടെ സർവീസ് നിർത്തി വയ്ക്കേണ്ടി വന്ന ജെറ്റ് എയർലൈൻ്റു ഉടമകൾ കമ്പനിയെ വിലയ്ക്കെടുക്കാൻ പാകത്തിൽ പ്രിട്ടി അളെ കണ്ടെത്താൻ വിഷമിക്കുകയാണെന്നും പ്രതിഷേധുക്ക്ടർ പറഞ്ഞു കേന്ദ്രവ്യോമ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടികൃഷ് കെ മിശ്രയുമായി ജെറ്റ് എയർവേയ്സ് ജീവനക്കാർ ചർച്ച് നടത്തി ജെറ്റ് എയർവേയ്സിന്റെ പുന്നുപ്പവർത്തന കാര്യങ്ങളിൽ ഗവൺമെന്റ് ഏറെ ഉത്കണ്ഠാകുല്രാണെന്നും ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യം അറിയാമെന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ചർച്ചകൾ തുടരുമെന്നും ജീവനക്കാർ പറഞ്ഞു

ദേശീയ സംസ്ഥാന ദുരന്തനിവാരണ ഫണ്ടിൽ നിന്നും ആവശ്യമായ എല്ലാ സഹായവും കേന്ദ്രം നല്കുമെന്നും ശ്രീ

കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കൃത്യമായ മുന്നറിയിപ്പും സംസ്ഥാന ഗവണ്മെന്റിന്റെ മികച്ച ആസൂത്രണവുമാണ് ഫോനി ചുഴലിക്കാറ്റിൽ മരണസംഖ്യ കുറയ്ക്കാൻ സഹായിച്ചതെന്നും ശ്രീ

ന്യൂഡൽഹിയിലെ രാജീവ്ഗാന്ധി സ്മൃതി മണ്ഡപമായ വീർ ഭൂമിയിൽ യു പി എ അധ്യക്ഷ സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി എന്നിവർ പുഷ്പാർച്ചന നടത്തി മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി മുൻ ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരി മുൻ പ്രധാനമന്ത്രി ഡോ

എസ് എൽ

ഇന്ധനം നിറയ്ക്കുന്നതിന്റെ നാലാംഘട്ടം തൃപ്തികരമായി പുരോഗമിക്കുന്നതായി ഐ എസ് ആർ

അരുണാചൽ പ്രദേശിലെ തിരാപ് ജില്ലയിൽ ഇന്ന് ഉച്ച തിരിഞ്ഞാണ് അക്രമസംഭവം നടന്നത്

മേരികോം തന്റെ ആദ്യ മത്സരത്തിൽ നേപ്പാളിന്റെ മാലാ റായിയെ പരാജയപ്പെടുത്തി